ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സർവ്വകക്ഷി യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു

ഗവൺമെന്റിന് സാവകാശ ഹർജി നൽകാനാവില്ലെന്നും യോഗത്തിൽ ശുഭ പ്രതീക്ഷയെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

എസ് ആർ

ബംഗാൾ ഉൾക്കടലിൽ രൂപംകൊണ്ട ഗജ ചുഴലിക്കാറ്റ് ഇന്ന് തമിഴ്നാട് തീരം തൊടും കനത്ത ജാഗ്രതയിൽ ആറു ജില്ലകൾ

ജലജ് സക്സേന മാൻ ഓഫ് ദി മാച്ച്

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് യോഗം യോഗത്തിന് ആമുഖമായി സ്ഥിതിഗതികൾ വിലയിരുത്തിയുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ചു

തീരുമാനങ്ങൾ ഉച്ചയ്ക്കുശേഷം യോഗ മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നാണ് സൂചന

നൽകാനാവില്ലെന്നും വിശ്വാസ്പിക്കളുട്ട താൽപരൃം എങ്ങനെ സംരക്ഷിക്കാമെന്നും യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു

വൈകിട്ട് അഞ്ചിന് മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നട തുറക്കും പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണം തന്ത്രി കണ്ഠരര് രാജീവരരുടെ കാർമ്മികത്വത്തിൽ സന്നിധാനത്ത് നടക്കും വൃശ്ചിക പുലരിയിൽ മറ്റന്നാൾ പുലർച്ചെ പുതിയ മേൽശാന്തിയാണ് നട തുറക്കുക

എസ് ആർ ടിസി ബസുകളിൽ പമ്പയിലേക്ക് പോവാൻ അനുവദിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

പത്മകുമാർ പ്രതികരിച്ചു

ആർ ടി

ഉച്ചയ്ക്ക് തിരുവനന്തപുരം കെ എസ് ആർ ടി സി ടെർമിനലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ സർവ്വീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും

നിലവിൽ രണ്ടു ബസുകളാണ് ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്

വൈകിട്ട് ആറു മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി ഇതോടൊപ്പം അനാഥരായ വിദ്യാർത്ഥികളെ ഗവൺമെന്റ് സംരക്ഷിക്കുന്ന് ശരണബാല്യം പദ്ധതിക്കും തുടക്കമാകും

ഉദ്ഘാടന ചടങ്ങിൽ ഒരു ലക്ഷത്തില്ലേറെ ആൾക്കാർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എം ഡി അറിയിച്ചു

വിമെൻസ് കോളേജിൽ മന്ത്രി സി

വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാനുഭവങ്ങൾ ഒരുക്കി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ അദ്ധ്യാപകരെ സജ്ജരാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം പരിശീലന പരിപാടി പത്തു ദിവസം നീണ്ടു നിൽക്കും

ഒ ഇൻട്രോ വിദൂര മേഖലകളിൽപ്പോലും വിവരസംവേദനത്തിന്റെ അനന്ത സാധൃതകൾ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഇന്നലെ വിജയകരമായി വിക്ഷേപിച്ച ജി

എസ് ആർ

ഒ ശാസ്ത്രജ്ഞരെ ഉപരാഷ്ട്രപതി എം

ജമ്മുകശ്മീരിലേയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേയും വിദൂര പ്രപ്പദേശങ്ങളിൽ ബ്രോഡ്ബാന്റ് സേവനം ലഭൃമാക്കാൻ ഇതുമൂല് കഴിയുമെന്ന് വെങ്കയ്യ നായിഡു ടിറ്ററിൽ പറഞ്ഞു

രാവിലെ തീവ്ര ചുഴലിക്കാറ്റായി മാറുന്ന ഇതിന്റെ ശക്തി കരയിലെത്തുമ്പോൾ കുറയും

തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഏത് സാഹചര്യവും നേരിടാൻ നാവികസേനയെ സജ്ജമാക്കി നിർത്തിയതായി അധികൃതർ അറിയിച്ചു

കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ നാളെവരെ യെല്ലോ അലർട്ട് തുടരും

അടുത്ത മാസമാണ് സ്കൂൾ കലോത്സവം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ